മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം പ്രവർത്തിക്കാൻ ലഫ്റ്റനന്റ് ഗവർണർ ബാധ്യസ്ഥനാണെന്നും അഞ്ചംഗ ഭരണ ഘടനാബെഞ്ച്

ജി പി ലോക്നാഥ് ബെഹ്റ

ആദ്യ മത്സരത്തിൽ ഉറുഗ്വെ ഫ്രാൻസിനെ നേരി ടും ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാലിന് സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ അധികാരമില്ലെന്ന് സുപ്രീംകോ ടതി വിധിച്ചു മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം പ്രവർത്തിക്കാൻ ലഫ്റ്റനന്റ് ഗവർണർ ബാധ്യസ്ഥനാണെന്നും ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാബെഞ്ച് വ്യക്ത മാക്കി ഡൽഹിയുടെ ഭരണത്തലവൻ ലഫ്റ്റനന്റ് ഗവർണറാണെന്ന ഹൈക്കോടതി വിധിക്കെതിരെ അരവിന്ദ് കേജ്രിവാൾ ഗവൺമെന്റ് നൽകിയ അപ്പീലിലാണ് സുപ്രീംകോടതിയുടെ സുപ്രധാന വിധി അഞ്ചംഗ ബെഞ്ചിലെ മൂന്ന് ജഡ്ജിമാരുടെ വിധി ചീഫ്ജസ്റ്റിസ് പ്രഖ്യാപിച്ചപ്പോൾ ജസ്റ്റിസുമാരായ എ കെ സിക്രിയും എ എൻ ഖൻവിൽക്കറും ഇതിനോട് യോജിക്കുന്ന വിധിപ്രസ്താവം തന്നെ യാണ് നടത്തിയത് മന്ത്രിസഭാതീരുമാനങ്ങളെല്ലാം ലഫ്റ്റനന്റ് ഗവർണറെ അറി യിക്കണമെന്നും എന്നാൽ അതിന് അദ്ദേഹത്തിന്റെ സമ്മതം ആവ ശ്യമില്ലെന്നും ഭരണഘടനാബെഞ്ച് അറിയിച്ചു ലഫ്റ്റനന്റ് ഗവർണർ തടസ്സവാദിയാകരുത് ഭൂമി ക്രമസമാധാനം തുടങ്ങി മൂന്ന് കാര്യങ്ങളൊഴികെ നിയമനിർമ്മാണം നടത്താൻ ഡൽഹി ഗവൺമെന്റിന് അധികാരമുണ്ട് മന്ത്രിമാരുമായി ലഫ്റ്റനന്റ് ഗവർണർ സഹവർത്തിത്വത്തിൽ പ്രവർത്തിക്കണം ഭിന്നാഭിപ്രായങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി ഭിന്നത നിലനിൽക്കുന്ന കാര്യങ്ങൾ ലഫ്റ്റനന്റ് ഗവർണർ രാഷ്ട്രപതിയ്ക്ക് മാത്രമേ റഫർ ചെയ്യാവൂ എന്നും വിധിയിലറിയിച്ചു മന്ത്രിമാർ ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യസ്ഥരാണെന്ന കാര്യം ലഫ്റ്റനന്റ് ഗവർണർ മനസ്സിലാക്ക ണമെന്നും കോടതി അറിയിച്ചു സുപ്രീംകോടതി വിധി ജനാധിപത്യത്തിനും ഡൽഹിയിലെ ജന ങ്ങൾക്കും വൻ വിജയമാണെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ അഭിപ്രായപ്പെട്ടു കോളേജ് ക്യാമ്പസുകളിലെ അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കു മെന്ന് സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ പറഞ്ഞു എറണാകുളം മഹാരാ ജാസ് കോളേജിലെ വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിന് പിന്നിൽ പ്രൊഫഷണൽ സംഘമാണെന്നാണ് പ്രാഥമിക നിഗമനമെന്നും വിശദമായ അന്വേഷണം തുടരുകയാണെന്നും അദ്ദേഹം തിരുവ നന്തപുരത്ത് വ്യക്തമാക്കി അഭിമന്യു വധത്തിൽ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയ്ക്ക് പങ്കുണ്ടോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും ഡി ജി പി വ്യക്ത മാക്കി എറണാകുളം മഹാരാജാസ് കോളേജിൽ വിദ്യാർത്ഥി കൊല്ല പ്പെട്ട കേസിൽ ഏതാനും പേരെ കൂടി അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു എന്നാൽ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി യിട്ടില്ല കൂടുതൽ പേരെ ചോദ്യം ചെയ്ത് വരികയാണ്

അതിനിടെ കേസിൽ റിമാന്റിലായ മൂന്നുപേരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് പൊലീസ് എറണാകുളം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് ഹർജി നൽകിയേക്കും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ താൽപര്യങ്ങളും മത്സ്യ സമ്പത്തും സംരക്ഷിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റിന് അധി കാരമുണ്ടെന്ന് ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് ഫിഷ റീസ് ഡയറക്ടർ അറിയിച്ചു

മൺസൂൺകാല മത്സ്യബന്ധന നിയന്ത്രണങ്ങൾ പരമ്പരാഗത മത്സ്യബന്ധനത്തിലേർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്കും ബാധ കമാണെന്നും ഹൈക്കോടതി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാൽ പര മ്പരാഗത മേഖലയിൽ ബോട്ടം ട്രോളിംഗ് പൊതുവെ ഇല്ലാത്തതി നാൽ നിലവിലെ സ്ഥിതിയിൽ യാതൊരുമാറ്റവും കോടതിവിധിമൂലം ഉണ്ടാകില്ലെന്നും ഫിഷറീസ് ഡയറക്ടർ അറിയിച്ചു

ഭിന്നശേ ഷിക്കാരുടെ നൈപുണ്യ വിക സ നത്തി നായി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു അദ്ദേഹം സുനന്ദ പുഷ്ക്കറിന്റെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഭർത്താവും മുൻ കേന്ദ്രമന്ത്രിയുമായ ഡോ ശശി തരൂർ സമർപ്പിച്ച മുൻകൂർ ജാമ്യഹർജിയിൽ ഡൽഹിയിലെ പട്യാല ഹൌസ് കോടതി നാളെ വിധി പറയും മുൻകൂർ ജാമ്യഹർജിയെ പ്രത്യേക അന്വേഷണസംഘം കോടതിയിൽ എതിർത്തു സുനന്ദ യുടെ മരണവുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച കോടതിയിൽ ഹാജ രാകാനിരിക്കെയാണ് ഡോ ശശി തരൂർ മുൻ കൂർ ജാമ്യഹർജി നൽകിയത് സുനന്ദയുടെ മരണത്തിൽ ആത്മഹത്യാപ്രേരണക്കു റ്റമാണ് ഡോ തരൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ സി ബി

വിചാരണ വൈകിക്കുന്നതിനാണ് ദിലീപിന്റെ ശ്രമമെന്ന് ഗവൺമെന്റ് കോടതിയിൽ അറിയിച്ചു പത്തനംതിട്ട വെച്ചൂച്ചിറ സ്വദേശിനി ജസ്നയെ കാണാതായ പരാതി സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ജസ്നയുടെ സഹോദരനാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് അതിനിടെ ജസ്നയുടെ ദൃശ്യങ്ങൾ മുണ്ടക്കയത്തെ ഒരു കട യിലെ സി

ടി

നേരത്തെ ഇടിമിന്നലിൽ നഷ്ടപ്പെട്ട ഈ കൃാമറയിലെ ദൃശ്യങ്ങൾ ഹൈടെക് സെല്ലിന്റെ സഹായത്തോടെ പൊലീസ് വീണ്ടെടുക്കു കയായിരുന്നു കാണാതായ ദിവസം ഉച്ചയോടെ ബസ് സ്റ്റാന്റിന ടുത്ത കടയുടെ മുന്നിലൂടെ ജസ്ന നടന്ന് പോകുന്ന ദൃശ്യങ്ങ ളാണ് സി സി ടി വി യിലൂടെ ലഭിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോട്ടോ വ്യാജമായി നിർമ്മിച്ച് നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച സംഭവത്തിൽ പൊലീസ് കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞ ദിവസം പിണറായി പൊലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്റ്റേഷനിലെ രജിസ്റ്ററിൽ ഒപ്പ് വെക്കുന്ന ഫോട്ടോ ഭക്ഷണം കഴിക്കുന്ന രീതി യിൽ വ്യാജമായി നിർമ്മിക്കുകയായിരുന്നു ലോകകപ്പ് ഫുട്ബോളിൽ കാർട്ടർ പോരാട്ടത്തിന് മറ്റന്നാൾ തുടക്കം പ്രീ കാർട്ടർ മത്സരങ്ങൾ ഇന്നലെ പൂർത്തിയായി ഇന്നും നാളെയും കളിയില്ല

കൊച്ചി മെട്രോയിലെ സ്ഥിരയാത്രക്കാർക്കായി നാളെ മുതൽ പാസ് സംവിധാനം ഏർപ്പെടുത്തും

കൊച്ചുവേളി മംഗലൂരു അന്ത്യോദയ എക്സ്പ്രസ് മറ്റന്നാൾ മുതൽ കാസർകോട്ട് നിർത്തുമെന്ന് റെയിൽവെ അധികൃതർ അറി യിച്ചു കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ ഇതുസംബന്ധിച്ച ഉത്തരവ് എം പി മാരായ പി കരുണാകരൻ വി മുരളീധരൻ എന്നിവർക്ക് അയച്ചുകൊടുത്തു ആറുമാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തി ലാണ് ട്രെയിൻ നിർത്തുക സംസ്ഥാനത്തെ പോളിടെക്നിക്കുകളിൽ ആദ്യഘട്ട അലോ ട്ട്മെന്റ് പ്രവേശനം നാളെ അവസാനിക്കും അർഹരായവർ വൈകിട്ട് അഞ്ചിനുമുമ്പ് പ്രവേശനം നേടണം

രണ്ടാംഘട്ട അലോട്ട്മെന്റ് തിങ്കളാ ഴ്ചയാണ്

ആകെ നാല് അലോട്ട്മെന്റുകളിൽ ശേഷിക്കുന്ന ഒഴിവ് സ്പോട്ട് അഡ്മിഷനി ലൂടെയാവും നികത്തുക കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കണ്ണൂർ കലക്ടറേറ്റിലേക്ക് മാർച്ച് നട ത്തി

കണ്ണൂർ സ്റ്റേഡിയം കോർണ്ണറിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു പരിയാരം മെഡിക്കൽ കോളജ് ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടും സ്വകാര്യ സ്വാശ്രയ സ്ഥാപനത്തിലേതുപോലെ ഫീസ് ഈടാക്കു ന്നു എന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി

സി സി പ്രസിഡണ്ട് സതീശൻ പാച്ചേനി ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ജില്ല ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ആഭി മുഖ്യത്തിൽ വയോസുരക്ഷ പദ്ധതി ആരംഭിച്ചു മുതിർന്ന പൌര ന്മാർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അവരുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പുവരുത്താനുമായി രൂപം കൊടുത്ത പദ്ധതിയാണ് വയോസുരക്ഷ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹയർസെക്ക ണ്ടറി സ്കൂൾ മദർ പി

എ സംഘടിപ്പിക്കുന്ന പുസ്തക പ്രദർശന വിപണനമേള ഉച്ചകഴിഞ്ഞ് ആരംഭിക്കും സ്നേഹപൂർവം മക്കൾക്കായ് എന്നുപേരിട്ട പുസ്തകോത്സവം വെള്ളിയാഴ്ച സമാ പിക്കും ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി കാസർകോട് ജില്ലാപൊലീസ് മേധാവിയുടെ നേതൃ ത്വത്തിൽ നടത്തുന്ന സൈക്കിൾപ്രയാണം ഇന്ന് മഞ്ചേശ്വരത്ത് സമാപിക്കും

മട്ടന്നൂരിൽ നാല് സി

ഐ എം പ്രവർത്തകർക്ക് വെട്ടേറ്റ കേസിൽ അറസ്റ്റിലായ മൂന്നുപേരെ മട്ടന്നൂർ കോടതി റിമാന്റ് ചെയ്തു

എസ് എസ് പ്രവർത്തകരായ നെല്ലൂന്നിയിലെ സച്ചിൻകുമാർ മട്ടന്നൂരിലെ സുജി നീർവേലിയിലെ വിജിത്ത് എന്നി വരാണ് റിമാന്റിലായത് കണ്ണൂർ ഉളിക്കലിൽ വാഹനപരിശോധനക്കിടെ ബൈക്ക് തട്ടി എസ്

ഇദ്ദേഹത്തെ ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

മാലിന്യങ്ങളും ചെളിയും നീക്കം ചെയ്ത് ചിറ നവീകരിക്കാനാണ് പദ്ധതി തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം നാളെ നടക്കും വൈസ് ചാൻസലർ ഡോ

സർവകലാശാലയുടെ ബഷീർ കലാലയ കഥാപുരസ്കാ രവും ചടങ്ങിൽ സമ്മാനിക്കുമെന്ന് അധികൃതർ അറിയിച്ചു

ഉച്ചുക ഴിഞ്ഞ് ടൌൺഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ കെ

ശൈലജ ടി